ഇന്നലെ ഒന്നേകാൽ ലക്ഷത്തിലേറെ പരിശോധന നടത്തിയതായി റിപ്പോർട്ട്

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഊർജ്ജിത കോവിഡ് പരിശോധന ഇന്നും തുടരും ആദ്യ ദിവസമായ ഇന്നലെ ഒന്നേകാൽ ലക്ഷത്തിലേറെ പരിശോധനകൾ നടത്തിയതായാണ് റിപ്പോർട്ട്

ജില്ലകളിലും കോവിഡ് പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്

പതിനായിരം പേരെ പരിശോധിക്കാനാണ് ജില്ലയിൽ ലക്ഷ്യമിടുന്നത്

അതിനിടെ സംസ്ഥാനത്ത് രണ്ട് ലക്ഷം ഡോസ് വാക്സിൻ ഇന്നലെ രാത്രിയോടെ എത്തിച്ചതായി റിപ്പോർട്ടുണ്ട് വാക്സിൻ ക്ഷാമം മൂലം കുത്തിവെയ്പ്പ് നിർത്തിവെച്ച കേന്ദ്രങ്ങളിൽ ഇന്ന് വീണ്ടും വാക്സിനേഷൻ ആരംഭിക്കും

കൊവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ ശക്തമായി ഇടപെടാൻ ജനപ്രതിനിധികളോടും ബഹുജന സംഘടനകളോടും എൽഡിഎഫ് യോഗം ആഹ്വാനം ചെയ്തു

തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന്റെ ഉൽപ്പാദനം അടുത്ത രണ്ട് മാസത്തിനിടെ ഇരട്ടിയാക്കുമെന്ന് ബയോടെക്നോളജി വകുപ്പ് അറിയിച്ചു

സെപ്റ്റംബറോടെ പ്രതിമാസ ഉൽപ്പാദനം പത്ത് കോടി ഡോസാക്കും

ജൂൺ ആദ്യവാരത്തോടെ പുതുക്കിയ പരീക്ഷാ തീയതികൾ തീരുമാനിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ

രുഭ സംസ്ഥാനത്ത് ഇന്നലെ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം പതിനായിരം കവിഞ്ഞു

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം

നിലവിൽ എഴുപതിനായിരത്തോളം പേർ കോവിഡ് ചികിത്സയിലുണ്ട് ദ്ദേ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രാപൌർണമി ഉത്സവം ഈ വർഷവും ഉണ്ടാവില്ലെന്ന് ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു കഴിഞ്ഞ വർഷവും ചിത്രാപൌർണമി കോവിഡ് മൂലം ഒഴിവാക്കിയിരുന്നു ദേദ കോഴിക്കോട് ജില്ലയിലെ കൺടെയ്ൻമെന്റ് സോണുകളിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി

കാസർകോട് കാഞ്ഞങ്ങാട് നീലേശ്വരം ചെറുവത്തൂർ ഉപ്പള കുമ്പള ടൌണുകളിൽ നിബന്ധന ബാധകമാണ് ദര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുവരെ ആയിരം കോടിയിലേറെ രൂപയുടെ കണക്കിൽപ്പെടാത്ത പണവും സാധനങ്ങളും പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ചെന്നൈയുടെ ആദ്യ വിജയമാണിത്

ഇന്ന് വൈകീട്ട് ഏഴരക്ക് ചെന്നൈയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ദേദ തൃശൂർപൂരത്തിന് ഇന്ന് കൊടിയേറും

രുഭ വിഷു പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നാളെ രാത്രി നടയടയ്ക്കും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്നലെ കളഭാഭിഷേകവും പടി പൂജയും നടന്നു ദീപാരാധനക്ക് ശേഷം പതിനെട്ടാംപടി കഴുകി വൃത്തിയാക്കി പട്ടുവിരിച്ചു ഇന്നും നാളെയുമായി ഉദയാസ്തമന പൂജയും പടിപൂജയും ഉണ്ടാകും ദേഴ പ്രശസ്ത തമിഴ് നടൻ വിവേക് ചെന്നൈയിൽ അന്തരിച്ചു

ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈ വടപളനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ഹാസ്യ വേഷങ്ങൾക്ക് പുതിയ അവതരണ ശൈലിയിലൂടെ ജനപ്രിയനായ നടനായിരുന്നു വിവേകാനന്ദൻ എന്ന വിവേക്

മെഡിക്കൽ കോളേജ് കടലാസ് രഹിതമാകുന്നു ഇ ഹെൽത്ത് പദ്ധതിയിലുൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവിലാണ് നവീന സൌകര്യങ്ങൾ ഒരുക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ ഇഎൻടി ഡെർമറ്റോളജി മെഡിസിൻ പീഡിയാട്രിക്സ് വിഭാഗങ്ങളിൽ കടലാസ് രഹിത സംവിധാനത്തിന് നടപടികൾ പൂർത്തീകരിച്ചു രണ്ടാംഘട്ടത്തിൽ മുഴുവൻ വാർഡുകളും കംപ്യൂട്ടർ ശ്യംഖല വഴി ബന്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ദേദ കൊണ്ടോട്ടിയിൽ വാഹനത്തിൽ കൊണ്ടുപോകുകയായിരുന്ന ഒരുകോടി രൂപയുടെ കുഴൽപ്പണവുമായി മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വള്ളുവമ്പ്രം സ്വദേശികളായ റഹീസ് അബ്ദുൽ കരീം അബ്ദുൽ സമദ് എന്നിവരാണ് കൊണ്ടോട്ടി കുറുപ്പത്തുവച്ച് പിടിയിലായത്

ദേദ ഇടുക്കി ഹൈറേഞ്ചിൽ ഇന്നലെ അതിശക്തമായി പെയ്ത വേനൽ മഴയിൽ വ്യാപക കൃഷി നാശം മഴയ്ക്കൊപ്പം ആലിപ്പഴവും വീണതോടെ ഏക്കറുകളിലെ കാർഷിക വിളകൾക്ക് നാശം നേരിട്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണും നാശനഷ്ടം ഉണ്ടായി